വരും ആഴ്ചകൾ നിർണ്ണായകമെന്ന് മുഖ്യമന്ത്രി

സ്ക്പ്പീക്കറുടെ നോട്ടീസിന് സ്റ്റേ

സംയുക്തമായി വികസിപ്പിച്ച് ഇന്ത്യയും ഇസ്രയേലും

അമേരിക്കയിലും മെക്സിക്കോയിലും ആശങ്ക തുടരുന്നു

കോവിഡ് മഹാമാരി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇത് ആദ്യമായാണ് പ്രതിദിന രോഗമുക്തരുടെ എണ്ണത്തിൽ ഇത്രയും വർദ്ധന റിപ്പോർട്ട് ചെയ്യുന്നത്

നാല് ലക്ഷത്തിലധികം പേർ നിലവിൽ ചികിത്സയിലുണ്ട്

സംസ്ഥാനത്തെ നിലവിലെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തിയ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താനുള്ള വിശദമായ മാർഗരേഖ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ പുറത്തിറക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചു

പല ജില്ലകളിലും സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഉയർത്തുന്നു

പ്രധാന രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്തി നടത്തുന്ന യോഗത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപനവും ചർച്ചയാകുമെന്നാണ് സൂചന

സന്നദ്ധ സേവനം ചെയ്യാൻ കഴിയുന്നവർ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

സ്പീക്കറുടെ അയോഗ്യത നോട്ടീസ് ചോദൃം ചെയ്ത് സച്ചിൻ പൈലറ്റും എം എൽ എ മാരും സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്

ഹർജിയിൽ കേന്ദ്രസർക്കാരിനെക്കൂടി കക്ഷി ചേർക്കാനുള്ള അപേക്ഷയും കോടതി അംഗീകരിച്ചു

ഗൾഫ് നാടുകൾക്ക് പുറമെ സാൻഫ്രാൻസിസ്കോ മാലദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവ്വീസുകളും ഇതിൽ ഉൾപ്പെടും

ഇ കിറ്റ് അടക്കം കൈകാര്യം ചെയ്യുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ ് ഷോപ്പിംഗ് മാളുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഓഫീസുകൾ എന്നിവയും ഈ നടപടിക്രമം പാലിക്കേണ്ടതാണ്

കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം രണ്ട് സെക്ടറുകളിലാണ് വെടിവയ്പ് ഉണ്ടായത് പ്രദേശവാസിയായ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു

ഫാവി പിരാവിർ എന്ന പ്രതിരോധ വാക്സിൻ ആണ് കമ്പനി പുറത്തിറക്കുന്നത്

ആർ ന്റെ സാങ്കേതിക പിന്തുണയോടെയാണ് മരുന്ന് നിർമിച്ചത് പരീക്ഷണഘട്ടത്തിൽ മികച്ച പ്രതികരണമാണ് വാക്സിന് ലഭിച്ചതെന്ന് സിപ്ല അറിയിച്ചു

ഒ യിലെ ശാസ്ത്രജ്ഞരും ഇസ്രായേൽ പ്രതിരോധ ഗവേഷണ വിഭാഗവും സംയുക്തമായാണ് റാപിഡ് പരിശോധനകിറ്റ് നിർമിച്ചിരിക്കുന്നത്

മൈക് റെയാൻ അഭിപ്രായപ്പെട്ടു

ദിവ്യാംഗർക്കും റേഷൻ അനുവദിക്കണമെന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും

സ്വർണവില ഉയർന്ന് സർവകാല റെക്കോർഡിൽ